റിട്ട് ഹർജികൾ പിന്നീട് പരിഗണിക്കാനും സുപ്രിം കോടതി തീരുമാനിച്ചു

എസ് ശ്രീധരൻപ്പിള്ളക്കെതിരായ കേസ് പിൻവലിക്കാനാവില്ലെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു

പി ഹരികുമാ റിനെ മരിച്ച നിലയിൽ കണ്ടെത്തി

ഉച്ചകഴിഞ്ഞ് മൂന്നിന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ ചേമ്പറിലായി രിക്കും ഹർജികളുടെ പരിഗണന

ശബരിമല സംരക്ഷണ ഫോറമാണ് തുറന്ന കോടതിയിൽ ഹർജികൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടത്

റിട്ട് ഹർജികൾ പരിഗണിക്കുന്ന തീയതി കോടതി അറിയിച്ചിട്ടില്ല മൂന്നംഗ ബെഞ്ചാണ് നാല് റിട്ട് ഹർജികളുടെ പരിഗണന മാറ്റി വെച്ചത് അതിനിടെ റിട്ട് ഹർജികളെ സംസ്ഥാന ഗവൺമെന്റ് സൂപ്രീംകോടതിയിൽ എതിർത്തു നിലനിൽപില്ലാത്തവയാണ് ഹർജികളെന്നും അവ തള്ളണമെന്നും സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഒരേ വ്യക്തികൾ തന്നെ റിട്ടും പുനപരി ശോധനാ ഹർജിയും നൽകിയ നടപടി നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഗവൺമെന്റ് അറിയിച്ചു റിവ്യൂ ഹർജികൾ തുറന്ന കോടതിയിൽ കേൾക്കണ മെന്ന ആചാര സംരക്ഷണ ഫോറത്തിന്റെ ആവശ്യവും ചീഫ് ജസ്റ്റിസ് നിരാക രിച്ചു റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതിനിടയിൽ ഈ ആവശ്യം ഉന്നയിച്ച അഭി ഭാഷകനെ കോടതി വിമർശിച്ചു റിവ്യൂ ഹർജികൾ പരിഗണിക്കാമെന്ന് തീരുമാ നിച്ചാൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നതുൾപ്പെടെ കാര്യങ്ങളിൽ ഉത്ത രവിറക്കും ശബരിമല റിപ്യൂ ഹർജിയിൽ സുപ്രിംകോടതി തീരുമാനം എതിരായാലും പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് വർക്കിങ് പ്രസിഡന്റ് കെ

മണ്ഡല മകര വിളക്ക് കാലത്ത് സന്നിധാനത്ത് എന്തും സംഭവി ക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

ശ്രീധരൻപിള്ളയെ അറസ്റ്റ് ചെയ്യാത്തത് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്നും സുധാകരൻ മലപ്പുറത്ത് അഭിപ്രായപ്പെട്ടു ശബരിമല വിഷയത്തിൽ കോഴിക്കോട്ടെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരായ കേസ് പിൻവലിക്കാനാവില്ലെന്ന് ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു യുവ മോർച്ച സംസ്ഥാനി സമിതി യോഗത്തിൽ ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗ ത്തിന് ശേഷം ശബരിമലയിലും സന്നിധാനത്തും പ്രശ്നങ്ങളുണ്ടായതായി സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ശബരി മല തന്ത്രിയോട് സുപ്രിംകോടതി ഉത്തരവ് ലംഘിക്കാൻ ശ്രീധരൻപിള്ള ആവ ശ്യപ്പെട്ടെന്ന് ഗവൺമെന്റ് അറിയിച്ചു

പ്രസംഗത്തിന്റെ പേരിലെടുത്ത പോലീസ് കേസ് റദ്ദാക്കണമെന്ന ഹർജിയിലാണ് ഗവൺമെന്റ നിലപാട് അറിയിച്ചത് അതെസമയം സ്ഥകാര്യ പരിപാടിയിലെ പ്രസംഗം കേൾക്കാതെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നില്ല പ്രസംഗമെന്നും അദ്ദേഹം പറഞ്ഞു കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി മറ്റന്നാളത്തേക്ക് മാറ്റി

സംസ്ഥാന ഗവൺമെന്റിനോടും ദേവസ്വം ബോർഡിനോടും നിലപാട് അറിയി ക്കാൻ കോടതി ആവശ്യപ്പെട്ടു

നെയ്യാറ്റിൻക്ര സനൽകുമാർ വധക്കേസ് പ്രതി ഡി

ഹരികുമാറിനായി പോലീസ് തമിഴ്നാട്ടിലും സമീപ പ്രദേശങ്ങളിലും ഒരാഴ്ചയായി തിരച്ചിൽ നടത്തി വരികയായിരുന്നു സനൽകുമാറിനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് സനലിന്റെ ഭാര്യ വിജിയും അമ്മയും അടുത്ത ബന്ധുക്കളും ആരംഭിച്ച ഉപവാസ സമരം പിൻവലിച്ചു എന്നാൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ പോലീസുകാർക്കുമെ തിരെ നടപടിയെടുക്കുന്നത് വരെ പ്രതിഷേധ പരിപാടികൾ തുടരുമെന്ന് ആക്ഷൻ കൌൺസിൽ നേതാക്കൾ അറിയിച്ചു

ഇന്ന് രാവിലെ എട്ടിനാണ് വിജിയും കുടുംബവും ഉപവാസ സമരം തുടങ്ങിയത് സംസ്ഥാനത്ത് നാളികേര കൌൺസിൽ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു

എസ് സുനിൽകുമാർ അധ്യക്ഷനായാണ് കൌൺസിൽ രൂപീകരിക്കുന്നത് നാളികേരത്തിന്റെയും മൂല്യവർധിത ഉൽപന്നങ്ങളുടെയും ഉൽപാദന വർധന ലക്ഷ്യമിട്ടാണ് സമിതി രൂപീകരിക്കുന്നത് അനധികൃത ഫ്ളക്സുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ കേസെടുക്കാൻ തയാ റാവണമെന്ന് ഹൈക്കോടതി നിർദേശിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ആർജവം കാണിക്കണമെന്നും സ്വന്തം ചിത്രങ്ങളോട് കൂടിയ ഫ്ളക്സുകൾ വഴിയരികിൽ അനധികൃതമായി സ്ഥാപിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും കോടതി വൃക്തമാക്കി ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയെയും തെരഞ്ഞെ ടുപ്പ് കമ്മിഷനെയും കേസിൽ കക്ഷി ചേർക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു

റിയാദ് ദോഹ എന്നിവിടങ്ങളിലേക്കും എയർ ഇന്ത്യാ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് അതിനിടെ ഇൻഡിഗോയും ഗോ എയർലൈൻസും സർവീസ് നടത്തുന്നതിനുള്ള താൽപര്യം അറിയിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ബോംബെ ഡൽഹി എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താ നാണ് ഗോ എയർലൈൻസിന്റെ തീരുമാനമെന്ന് അറിയുന്നു

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ജി

തിരുവനന്തപുരം വി

ഓട്ടോ ടാക്സി നിരക്ക് വർധനാ ശുപാർശ ജസ്റ്റിസ് എം രാമചന്ദ്രൻ കമ്മീ ഷൻ ഇന്ന് ഗവൺമെന്റിന് സമർപ്പിക്കും ബസ് നിരക്ക് വർധനവുമായി ബന്ധ പ്പെട്ട ആവശ്യം കമ്മിഷന്റെ പരിഗണനയിലാണെന്നും ഒരു മാസത്തിനകം ശുപാർശ സമർപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു

പരിചയ സമ്പന്നനായ നേതാ വിനെയാണ് അദ്ദേഹത്തിന്റെ മരണംമൂലം രാഷ്ട്രത്തിന് നഷ്ടമായതെന്ന് പ്രധാ നമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ അംഗീകരിച്ച അനുശോചന പ്രമേയത്തിൽ പറയുന്നു അനന്തകുമാറിന്റെ കൂടുംബാംഗങ്ങളെ ഗവൺമെന്റിനും രാഷ്ട്രത്തിനും വേണ്ടി അനുശോചനം അറിയിക്കുന്നതായും പ്രമേയത്തിൽ പറഞ്ഞു

സംസ്ഥാന സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കാസർകോട് നഗ രസഭാ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും

ചന്ദ്രശേഖരനും പരിപാടിയിൽ പങ്കെടുക്കും കേരള ബാങ്കും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കുള്ള അവസരവും എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും

കൊല്ലം ജില്ലാപഞ്ചായത്തിന്റെ സ്പോർട്സ് കിറ്റ് വിതരണം മന്ത്രി ഇ

ജ യരാജൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

തിരുവനന്തപുരത്ത് രഞ്ജിട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ആന്ധ്രക്കെതിരെ കേരളത്തിന് മികച്ച ബൌളിന് തുടക്കം

നാല് വിക്കറ്റ് വീഴ്ത്തിയ കെ സി അക്ഷയ് ആണ് ആദ്യ ദിനം കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്

ഉദ്ഘാടന മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നിന് സെന്റ് മൈക്കിൾസ് കോട്ടയം ഗിരിദീപം എച്ച്

എസിനെ നേരിടും

സായ് ടീമിനോട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ജയിക്കുകയോ സമനില നേടുകയോ ചെയ്താൽ കേരളത്തിന് കാർട്ടറിലെ ത്താം അന്ധവിശ്വാസങ്ങൾ പെരുകുന്ന കാലത്ത് ശാസ്ത്രബോധമുള്ള മനസ്സുകൾ സൃഷ്ടിക്കണമെന്ന് മന്ത്രി പ്രൊഫ

കണ്ണൂർ മയ്യിൽ ഗവൺമെന്റ് ഹയർ സെക്കന്റി സ്കൂളിൽ അനുവദിച്ച ഐഡിയൽ ശാസ്ത്രലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേന്ദ്ര മാനവ ശേഷി വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ ആർ എം എസ്

നാടൻ മത്സ്യ സമ്പത്ത് ശക്തിപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ ആവശ്യമാ ണെന്ന് മന്ത്രി വി

സുനിൽ കുമാർ പറഞ്ഞു മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ കോൾ നിലങ്ങളിലെ മത്സ്യസമ്പത്ത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം വംശനാശം വന്ന ചില ഇനം മത്സ്യങ്ങൾ കോൾ നിലങ്ങളിൽ കണ്ടെത്തി യത് സന്തോഷകരമാണെന്ന് മന്ത്രി പറഞ്ഞു പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കാതെ വികസന പരിപാടികൾ തയാറാക്കുന്നതും നടപ്പിലാക്കു ന്നതും അനുവദിക്കില്ലെന്നും സുനിൽ കുമാർ വൃക്തമാക്കി

രാജു ചേർത്തലയിൽ പറ ഞ്ഞു